വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് സാധിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

സ്ഥിരം കമ്മീഷൻ നൽകുന്നൃതിന്റുള്ള ഉത്തരവ് രാജ്യരക്ഷാ മന്ത്രാലയം പൂറത്തിറക്കി

കോവിഡ് സാഹചര്യം കണക്കിലെടുത്ത് എൻ

കളിലേയ്ക്കും കേന്ദ്ര സഹായത്തോടെ പ്രവർത്തിക്കുന്ന സാങ്കേതിക സ്ഥാപനങ്ങളിലേയ്ക്കുമുള്ള പ്രവേശന യോഗൃതയിൽ കേന്ദ്ര സർക്കാർ ഇളവുകൾ പ്രഖ്യാപിച്ചു

സ്ഥിരീകരിച്ചു

മണിപ്പൂർ ജലവിതരണ പദ്ധതിയുടെ ശിലാസ്ഥാപനം വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിർവ്വഹിക്കുകയായിരുന്നു അദ്ദേഹം കൂടുതൽ വിവരങ്ങളുമായി സോഫിയ വോയ്സ് കിഴക്കൻ ഏഷ്യയുമായുള്ള നമ്മൂള്ട് പ്പാചീന സാംസ്കാരിക ബന്ധത്തിന്റെ ഇടനാഴിയാണ് പ്പട്ടിക്ക് കിഴക്കൻ മേഖലയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

ലോക്ഡൌൺ കോവിഡ് മഹാമാരി തുടങ്ങിയവയ്ക്കിടയിലും ജൽ ജീവൻ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ടുപോകുന്നതിന് ഉദാഹരണമാണ് മണിപ്പൂർ ജല വിതരണ പദ്ധതി എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടി കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ ഗജേന്ദ്രസിംഗ് ഷെഖാവത് മണിപ്പൂർ ഗവർണർ മുഖ്യമന്ത്രി തുടങ്ങിയവരും വീഡിയോ കോൺഫറൻസിംഗിൽ പങ്കെടുത്തു ന്യൂസ്ഡെസ്ക് ആകാശവാണി

ഇതിലൂടെ വനിതാ ഓഫീസർമാർക്ക് സേനയിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ അവസരം ഒരുങ്ങും ജഡ്ജ് ആന്റ് അഡ്ക്കേറ്റ് ജനറൽ ആർമി എഡ്യൂകേഷനൽ കോർപ്സ് എന്നിവയ്ക്ക് പുറമെ കരസേനയിലെ പത്ത് വിഭാഗങ്ങളിലെയും ഷോർട്ട് സർവ്വീസ് കമ്മീഷനിലുള്ള വനിതാ ഓഫീസർമാർക്ക് ഇതിന്റെ ഭാഗമായി സ്ഥിരം കമ്മീഷൻ ലഭിക്കും ഇതിനായി സെലക്ഷൻ ബോർഡ് സ്ഥാപിക്കുന്നതുൾപ്പെടെയുള്ള മുന്നൊരുക്ക നടപടികൾ കരസേനാ ആസ്ഥാനത്ത് ആരംഭിച്ചതായാണ് ഔദ്യോഗിക വിവരം

സ്വയം പര്യാപ്ത കൈവരിക്കുന്ന്തിന് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ട നടപടികളെ അദ്ദേഹ്ം അഭിനന്ദിച്ചു കേന്ദ്ര കൽക്കരി മന്ത്രാലയം സംഘടിപ്പിച്ചു പൃക്ഷത്തൈനടീൽ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു

കൽക്കരി മേഖലയിൽ കൈവരിച്ച നേട്ടങ്ങൾ ് എട്ടുത്തു പറഞ്ഞ ശ്രീ അമിത്ഷാ കഴിഞ്ഞ ആറ് വർഷത്തിനിടയിൽ രാജ്യത്ത് നടപ്പാക്കിയ പുതിയ പരിഷ്ക്കരണ നടപടികൾ ഈ മേഖലയെ ആഗോള തലത്തിൽ കിടപിടിക്കാൻ പ്രാപ്തമാക്കിയതായും അഭിപ്രായപ്പെട്ടു വാണിജൃ ഖനനം നടപ്പാക്കാനുള്ള തീരുമാനത്തെ പ്രശംസിച്ച അദ്ദേഹം ഇത് കൽക്കരി ഇറക്കുമതിയിൽ ഇന്ത്യ മറ്റ് രാജൃങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ സഹായിക്കുമെന്നും അറിയിച്ചു

കേരളത്തിനു പുറമേ അസം തമിഴ്നാട് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭാ മണ്ഡലങ്ങളിലേയ്ക്കും ബീഹാറിലെ വാല്മീകി നഗർ പാർലമെന്റ് മണ്ഡലത്തിലേയ്ക്കും സെപ്റ്റംബർ ഏഴ് വരെ നടത്താനിരുന്ന ഉപതെരഞ്ഞെടുപ്പുകളാണ് മാറ്റി വച്ചത്

കളിലേയ്ക്കും കേന്ദ്ര സഹായത്തോടെ പ്രവർത്തിക്കുന്ന സാങ്കേതിക സ്ഥാപനങ്ങളിലേയ്ക്കുമുള്ള പ്രവേശന യോഗൃതയിൽ കേന്ദ്ര സർക്കാർ ഇളവുകൾ പ്രഖ്യാപിച്ചു

ഇ ഇ മെയിൻ പരീക്ഷ പാസ്സാകുന്ന വിദ്യാർത്ഥികൾക്ക് പ്ട്ടിട്ട്ടാം ക്ലാസ്സിലെ പാസ്സായ സർട്ടിഫിക്കറ്റ് മാത്രം മതിയാകുമെന്ന് പ്രകേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രി രമേശ് പൊക്രിയാൽ നിഷാങ്ക് അറിയിച്ചു

ഒരു ദിവസം രോഗം സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണത്തിലുണ്ടായ ഏറ്റവും ഉയർന്ന പ്രതിദിന വർധനയാണിത്

എൽ ഐ മാർ നൽകിയ ഹർജിയിൽ വിധി പറയാൻ ഹൈകോടതിക്ക് സ്ക്രീം കോടതി അനുമതി നൽകി

എ മാർക്കാണ് അയ്യോഗൃത്രാക്കുന്നത് സംബന്ധിച്ച് സ്പീക്കർ നോട്ടീസ് നൽകിയത്

ഈ സംവിധാനം വന ഉത്പന്നങ്ങളുടെ തടസ്സമില്ലാത്ത നീക്കത്തിന് സഹായകമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു ഇതിനായി പ്രധാനമന്ത്രി നരേന്ദ്ര മോദി വളരെയധികം പ്രയത്നിച്ചിട്ടുണ്ടെന്നും ഡിജിറ്റൽ ഇന്തൃ പദ്ധതിയെ മുന്നോട്ട് നയിക്കുന്ന മറ്റൊരു കൽവയ്പ്പാണിതെന്നും ശ്രീ പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു

ദിവൃാംഗർക്കും റേഷൻ അനുവദിക്കണമെന്ന ഡൽഹി ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് നടപടി

വിദേശകാര്യ മന്ത്രാലയ വക്താവ് അനുരാഗ് ശ്രീവാസ്തവയാണ് ഇക്കാര്യം ട്വിറ്ററിൽ അറിയിച്ചത്

നിലവിൽ ഗുജറാത്ത് ഗോവ ക്ട്രിള് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് ഒഡീഷ തുടങ്ങി ആറ് സംസ്ഥാനങ്ങളിലെ തുറമുഖ സേവനങ്ങൾ നിർവ്വഹിക്കുന്നത് അദാനി പോർട്ട്സ് ആണ്

റോഡ് ഗതാഗതം തടസ്സപ്പെട്ടതിനെ തുടർന്ന് ജനങ്ങൾ സുരക്ഷിത സ്ഥലങ്ങളിൽ അഭയം തേടിയിരിക്കുകയാണ്